ജെ

ജെ

അഞ്ചിടത്ത് കോൺഗ്രസിനാണ് വിജയം ഉത്തർപ്രദേശിൽ പത്തിൽ ഒമ്പത് സീറ്റും പിടിച്ചെടുത്ത ബി ജെ പി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയത്തിന് തിരിച്ചടി നൽകി എട്ട് സീറ്റ് മാത്രം ഉറപ്പുണ്ടായിരുന്ന ബി ജെ പി എസ് പി ബി

പി സഖ്യ ത്തിൽ നിന്ന് ഒമ്പതാംസീറ്റും പിടിച്ചെടുക്കുകയായിരുന്നു

പിക്കും പത്തെണ്ണം കോൺഗ്ര സിനും ലഭിച്ചു തൃണമൂൽ നാലും ടി

രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ വരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു

ലോക്സഭ ഇനി ചേരുന്ന ചൊവ്വാഴ്ച അവിശ്വാസപ്രമേയ നോട്ടീസ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സ ഭയിലെ കക്ഷിനേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത് രുട്ടിട്ടിട്ടിട തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിലെ നിരാശമൂലം പ്രതിപക്ഷം കേന്ദ്ര ഗവൺമെന്റിനെതിരെ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ്ടെന്ന് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി കുറ്റപ്പെടുത്തി സത്യം ജനങ്ങളിലെത്തിക്കാനും പ്രതിപക്ഷത്തിന്റെ വ്യാജ പ്രചാരണം തുറന്ന് കാട്ടാനും ബി ജെ പി എം പിമാർ ആധുനിക സാങ്കേ തിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ന്യൂഡൽഹിയിൽ ബി ജെ

ലോകം ഡിജിറ്റൽ ഭാവിയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ രാജ്യത്തി നുവേണ്ടി എന്ത് സംഭാവന നൽകാൻ കഴിയുമെന്ന് ഐ ടി സമൂഹം ചിന്തി ക്കണമെന്ന് സമാപന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണ ന്താനം ആവശ്യപ്പെട്ടു സമൂഹനന്മയ്ക്ക് പ്രയോജനം ചെയ്യുന്നതാവണം സാങ്കേതികവിദ്യകളെന്നും അദ്ദേഹം പറഞ്ഞു ഡിജിറ്റൽ വികസനത്തിന് രാഷ്ട്രീയം തടസ്സമല്ലെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

രുടെട്ട്ടറു ലോക ക്ഷയരോഗ ദിനാചരണത്തിൻെറ സംസ്ഥാനതല ചടങ്ങ് രാവി ലെ കണ്ണൂരിൽ മന്ത്രി കെ

ശൈലജ ഉദ്ഘാടനം ചെയ്യും ഗുരുതര ക്ഷ യരോഗം കണ്ടെത്താൻ സഹായിക്കുന്ന മൊബൈൽ ടി ബി ലാബ് പി

ശ്രീമതി എം പിയും ഉദ്ഘാടനം ചെയ്യും ക്ഷയരോഗ ബാധിതരുടെ എ ണ്ണം സംസ്ഥാനത്ത് വർഷം തോറും നാല് ശതമാനം എന്ന നിരക്കിൽ കുറ യുന്നുണ്ട്

ഐ

യു ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ഹേമലത കോഴിക്കോട്ട് കുറ്റപ്പെടുത്തി

ഐ

യു അഖിലേന്ത്യാ ജനറൽ കൌൺസിലിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അവർ ജനറൽ സെക്രട്ടറി തപൻ സിൻഹ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജനറൽ കൌൺസിൽ മറ്റന്നാൾ വൈകീട്ട് കോഴിക്കോട്ട് റാലിയോടെ സമാപിക്കും

സുനിൽക്കുമാർ പറഞ്ഞു കൊല്ലം മൺട്രോതുരുത്ത് പഞ്ചായത്ത് കൃഷിഭവൻ കെട്ടിടം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം കൃഷ്ടി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കർഷകരിലേക്കെത്തിക്കാൻ ജൂലൈ മുതൽ വാർഡുതല കർഷകസഭകൾ സംസ്ഥാനത്താകെ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു രുവെട്ടിട്ടിട്ടു സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളും ഭൌതിക സാഹചരൃം മെച്ചപ്പെടുത്തി നവീകരിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു കൊല്ലം പൂയപ്പള്ളി വില്ലേജ് ഓഫീസിന്റെ നവീകരിച്ച കെട്ടിടം നാടിന് സമർപ്പിക്കുക യായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ കൂടി സഹായത്തോടെയായിരിക്കും ഓഫീസുകളുടെ നവീകരണം രുമ്പ്പെട്ടിര ആഗോളതാപനത്തെയും കാലാവസ്ഥാ വൃതിയാനത്തെയും നേരിടാൻ ഇന്ന് ലോകവ്യാപകമായി ഭൌമമണിക്കൂർ ആചരിക്കും രാത്രി എട്ടര മുതൽ ഒൻപതര വരെയാണ് വിളക്കുകൾ അണച്ചും വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതെയും ഭൌമമണിക്കൂർ ആചരിക്കുന്നത് ലോകത്തോടൊപ്പം കേരളവും ഭൌമമണിക്കൂർ ആചരണത്തിന് മുന്നോട്ടു വരണമെന്ന് ഗവർണർ പി സദാശിവം ആഹ്വാനം ചെയ്തു

കരു ത്തരായ മണിപ്പൂരിനെ കൊൽക്കത്തയിൽ ഇന്നലെ ആറുഗോളിന് തോൽപ്പി ച്ചു ഇതോടെ കേരളം സെമിഫൈനൽ സാധ്യത ശക്തമാക്കി നാളെ കേരളം മഹാരാഷ്ട്രയെ നേരിടും

അവസാന ലീഗ് മത്സരത്തിൽ കർണാടകയെ അഞ്ച് വിക്കറ്റിനാണ് കേരളം തോൽപ്പിച്ചത്

കഴിഞ്ഞ അഞ്ചുദിവസം കൊണ്ട് നാല് കിലോമീറ്റർ ദൂരത്തിലാണ് സർവ്വേ പൂർത്തിയായത് വളാഞ്ചേരി ടൌൺ കാവുംപുറം വട്ടപ്പാറ വളവ് എന്നിവ ഒഴിവാക്കിയായിരിക്കും പുതിയ ദേശീയപാത കടന്നുപോവുക അതി നിടെ സർവേ നടത്തി സ്ഥാപിച്ച കല്ലുകൾ എടുത്തുമാറ്റുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ ഗവൺമെന്റ് പൊലീസിന് നിർദ്ദേശം നൽകി

മുണ്ടൂരിൽ നിന്നും ജനവാസ മേഖലയിലൂടെ നീങ്ങിയ കാട്ടാനകൾ ഇന്നലെ ഭാരതപ്പുഴയുടെ തീരത്ത് എത്തി യിരുന്നു മുതലമട ചെമ്മണാംപതി ഭാഗത്തും ആനകളിറങ്ങി ആദിവാസിക ളുടെ വീടുകൾ തകർത്തു

സ്റ്റേജ് മത്സരങ്ങൾ ഇന്നാരംഭിക്കും

രുമ്പ്പെട്ടിര കണ്ണൂരിൽ മലബാർ സാംസ്കാരിക പൈതൃകോൽസവംവൈകീട്ട് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

ചരിത്രപൈതൃക പ്രദർശനം മന്ത്രി കെ

സാക്ഷരതാ സർവേ പൂർത്തിയാക്കിയ നൂറ് കോളനികളിൽ അടുത്തമാസം ക്ലാസുകൾ തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട ഉത്തരവാദിത്വ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട്ട് മാമ്പുഴ ചാലിയാർ ജലായനം ടൂറിസം പദ്ധതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണ ത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്

ജെ പി പ്രതിനിധി സംഘം ആരോപിച്ചു

പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന്റെ നേതൃത്വ ത്തിലാണ് പ്രതിനിധി സംഘം വിവിധ ഊരുകൾ സന്ദർശിച്ചത് അദ്ദേഷ്ടെടെ ഒരു നിയമം എവിടെ അവസാനിക്കുന്നുവോ അവിടെ ഏകാധിപത്യം പിടി മുറുക്കുമെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആന്റണി ഡൊമനിക്ക് പറഞ്ഞു കൊച്ചിയിൽ സംസ്ഥാന പ്രോസിക്യൂട്ടർമാരുടെ പരിശീലന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് രുവെട്ടിട്ടുള ഇന്നലെ അന്തരിച്ച സാഹിത്യകാരനും പ്രശസ്ത വിവർത്തകനുമായ പാല ക്കാട് ധോണി സൂര്യനഗർ തെക്കേപ്പാട്ട് വീട്ടിൽ എം ടി നാരായണൻ നായ രുടെ സംസ്കാരം ഇന്ന് രാവിലെ പാമ്പാടി ഐവർമഠത്തിൽ നടത്തും കഥ കളും നോവലുകളും ഉൾപ്പെടെ നാല്പതോളം കൃതികൾ രചിച്ച അദ്ദേഹം തമിഴ് ഇംഗ്ലീഷ് ജാപ്പാനീസ് ചൈനീസ് ഭാഷകളിലെ കൃതികൾ മലയാള ത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് രുവെട്ട്ടറുള കണ്ണൂർ കീഴാറ്റൂരിലെ വയൽക്കിളികളുടെ സമരത്തിനെതിരെ സി

ഐ എമ്മിന്റെ നാട്കാവൽ സമരം ഇന്ന് നടക്കും വയൽക്കിളികളുടെ രണ്ടാം ഘട്ട സമരം നാളെ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനിടെ സമര പ്രഖ്യാ പനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊലീസ് ഇന്ന് രാവിലെ തളിപ്പറമ്പിൽ സർപ്പ കക്ഷിയോഗം വിളിച്ചു ശക്തമായ പൊലീസ്സുരക്ഷ പ്രദേശത്ത് ഒരുക്കിയി ട്ടുണ്ട്

എം സമരപ്പന്തലെന്ന പേരിൽ ചെക്ക്പോസ്റ്റ് നിർമ്മിക്കുന്ന ട തെന്ന് ബി ജെ പി കാസർകോട് ജില്ലാ പ്രസിഡന്റ് കെ

കർഷകവിരുദ്ധ നയമാണ് സി

എമ്മും ഇടത് ഗവൺമെന്റും സ്വീക രിക്കുന്നതെന്ന് അദ്ദേഹം തൃക്കരിപ്പൂരിൽ കുറ്റപ്പെടുത്തി

പുലർച്ചെ അവസാനിച്ച സംഘനൃത്തതോടെയാണ് മത്സരങ്ങൾക്ക് തിരശ്ശീല വീണത്

രണ്ടു ദിവസം ഇവർ മൂന്നാറിൽ ചെലവഴിക്കും

കെ തിലകന്റെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ണൂർ പയ്യാമ്പലത്ത് സംസ്ക്കരിക്കും കഴിഞ്ഞദിവസം ബഹ്റൈനിലാണ് അദ്ദേഹം അന്തരിച്ചത്